മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി പ്രവർത്തകരുടെ റാലിയെ അഭിസംബോധന ചെയ്തു കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ജനങ്ങൾ തള്ളിക്കളയണമെന്ന് പ്രധിഭാനമന്ത്രി

ദേശീയ കായിക പുരസ്കാര്യങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു

പ്രളയക്കെടുതി വിലിയിരുത്താൻ എത്തിയ യുഎൻ സംഘം എറണാകുളം ജില്ല സന്ദർശിച്ചു സംഘം നാളെ കോട്ടയത്ത് എത്തും

മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യൂവിനെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യകുറ്റപത്രം സമർപ്പിച്ചു

ആയുഷ്മാൻ ഭാരത് പദ്ധതിയോട് കേരളം വിമുഖത കാണിക്കുന്നത് സാധാരണക്കാരോടുള്ള ക്രൂരതയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള

ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ സൂപ്പർ ഫോറിൽ ഇന്ത്യയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാന് നാല് വിക്കറ്റ് നഷ്ടമായി

ജെ പി പ്രവർത്തകരുടെ കൂറ്റൻ റാലിയെ ഇന്ന് അഭിസംബോധന ചെയ്തു കോൺഗ്രസ് രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ജനം പുറന്തള്ളണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യു പി എ രാജ്യം ഭരിച്ച കാലഘട്ടം അഴിമതി നിറഞ്ഞതായിരുന്നു കൂട്ടായ്മയിലാണ് ബി ജെ പി വിശ്വസിക്കുന്നത് എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുടെ അഭിവൃദ്ധിക്കായാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്നും റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു ജനസംഘത്തിന്റെ സഹസ്ഥാപകനും പാർട്ടിയുടെ മാർഗ്ഗദർശിയുമായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് റാലി സംഘടിപ്പിച്ചത് പത്ത് ലക്ഷത്തോളം പ്രവർത്തകർ റാലിയിൽ പ്പ്ങ്കെടുത്തു

എട്ട് പരിശീലകർ ദ്രോണാചാര്യ അവാർഡും നാല് കായികതാരങ്ങൾ ധ്യാൻചന്ദ് അവാർഡും ഏറ്റുവാങ്ങി സുപ്രിംകോടതി ക്രിമിനൽ കേസിൽ പ്രതികളായവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജികൾ തള്ളി എന്നാൽ സുപ്രിംകോടതി നാമനിർദ്ദേശ പത്രികയിൽ സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ക്രിമിനൽ കേസിൽപെട്ടവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെന്റിന് നിയമനിർമാണം നടത്താമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ജനപ്രതിനിധികൾ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്നത് തടയണമെന്ന് ആവശൃപ്പെട്ട് സമർപ്പിച്ച ഹർജിയും സുപ്രിംകോടതി തള്ളി ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾ ഇതിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി

സുതാര്യമായ വായ്പ സംവിധാനങ്ങൾ ഏർപ്പെടൂത്തുന്നതിനും തട്ടിപ്പും തടയാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ബാങ്കുകൾ ഉറപ്പ് വരുത്തണമെന്ന് അവലോകന യോഗത്തിൽ സ്റ്റ്സാരിക്കവേ ധനമന്ത്രി പറഞ്ഞു

സന്ദർശിക്കും പ്രളയക്കെടുതിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങളും പ്രളയാനന്തര ആവശ്യകതകളും നിർണയിക്കുന്നതിന് യു എൻ സംഘം നാളെ കോട്ടയം ജില്ല സന്ദർശിക്കും ഫുഡ് ആന്റ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എഫ്

ഒ പ്രതിനിധി ഡോ

അനന്തരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ ഡോ

തിരുമേനി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ വിവിധ വകുപ്പു മേധാവികൾ എന്നിവരുമായി ചർച്ച നടത്തും

വിശദാംശങ്ങളുമായി സീന ആന്റണി ആയിരത്തി അഞ്ഞൂറോളം പേജുള്ള കുറ്റപത്രത്തിൽ അഭിമന്യുവിനെ കുത്തിയത് മരട് നെട്ടൂർ മസ്ജിദ് റോഡിൽ മേക്കാട്ട് സഹൽ ആണെന്ന് ഇയാൾക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് വ്യക്തമാക്കുന്നു

ബാക്കി പ്രതികളെ പിടികൂടുന്ന മുറയ്ക്ക് അതുംകൂടി ഉൾപ്പെടുത്തി അനുബന്ധ കുറ്റപത്രം നൽകും

അന്വേഷണ ഉദ്യോഗസ്ഥൻ കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമീഷണർ എസ് ടി സുരേഷ് കുമാർ അസി കമീഷണർ കെ ലാൽജി എന്നിവരുടെ നേതൃത്വത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്

ആരോഗ്യരംഗത്ത് ഇത്രയും ഗുണപ്രദമായ മറ്റൊരു പദ്ധതി ഇല്ലെന്നൂറ്റ് പ്പദ്ധതി നടപ്പായാൽ ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്ന് ഭയമാണ് സംസ്ഥാന ഗവൺമെന്റിനെ ഈ നിലപാടിലേക്ക് നയിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു

സംസ്ഥാന ഗവൺമെന്റ് നിലപാട് മാറ്റാൻ തയാറായില്ലെങ്കിൽ ്ബി ജെ പി സമരത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി മത്സരത്തിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അകപ്പെട്ട മലയാളി കമാൻഡർ അഭിലാഷ് ടോമിയെ ന്യൂ ആംസ്റ്റർഡാം ദ്വീപിൽ എത്തിച്ചു ഫ്രഞ്ച് മത്സ്യബന്ധന കപ്പലായ ഒസിരിസ് ആണ് അഭിലാഷിനെ രക്ഷപ്പെടുത്തിയത് ദ്വീപിൽ പ്രാഥമിക വൈദ്യസഹായം അഭിലാഷിന് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു

സിഎം ഡൽഹി പ്രളയ ദൂരിതാശ്വാസത്തിന് സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും

കേരളത്തിലെ പ്രളയ ദുരന്തവും അത്യാവശ്യം വേണ്ട കേന്ദ്ര സഹായവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവും പ്രളയത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടും പ്രധാനമന്ത്രിക്ക് കൈമാറും കേരളത്തിലെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിമാരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നട്ത്തും

വയനാട് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയായ ഡോ ശേഖർ എൽ കുര്യാക്കോസ് ആകാശവാണിയോട് പറഞ്ഞു

ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ജാഗ്രത ഇടുക്കിയിലെ പൊന്മുടി ജലസംഭരണിയുടെ രണ്ട് ഗേറ്റുകൾ തുറന്നു

അനുമതി കണ്ണൂർ ജില്ലാ ആശുപത്രിയെ സൂപ്പർ സ്പ്പ്ഷ്യാലിറ്റി തലത്തിലേക്ക് ഉയർത്തുതിനായി ജില്ലാ പഞ്ചായത്ത് സ്മർപ്പിച്ച മാസ്റ്റർ പ്ലാനിന് കിഫ്ബി യുടെ അനുമതി ലഭിച്ചു